ആരോഗൃ പ്രവർത്തകരെ ആക്രമിക്കുന്നത് ജാമൃമില്ലാ കുറ്റമാക്കുന്ന ഓർഡിനൻസിന് രാഷ്ട്രപതിയുടെ അംഗീകാരം

കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത വർദ്ധിപ്പിച്ച നടപടി മരവിപ്പിച്ചു

എട്ട് പേർ രോഗമുക്തരായി

ആരോഗൃ പ്രവർത്തകർക്കു നേരെ നടക്കുന്ന അക്രമങ്ങൾ ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യമാക്കിയാണ് കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് പുറത്തിറക്കിയത്

ഗുജറാത്താണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ പേർ മരിച്ച രണ്ടാമത്തെ സംസ്ഥാനം

ഗോവയ്ക്ക് പിന്നാലെ കൊറോണ മുക്തമാകുന്ന രണ്ടാമത്തെ സംസ്ഥാനമായി മണിപ്പൂർ മാറി

കൂടുതൽ വിവരങ്ങളുമായി നരേന്ദ്ര മോഹൻ

തിങ്കളാഴ്ചയാണ് ശ്രീ മോദി മുഖ്യമന്ത്രിമാരെ വീഡിയോ കോൺഫ്ഹൻസിലൂടെ കാണുക

ഇടുക്കി നാല് കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ രണ്ട് വീതവും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് എട്ട് പേർ രോഗമുക്തി നേടി കോട്ടയം ഇടുക്കി ജില്ലകളെ നേരത്തെ ഗ്രീൻ സോണിൽ ഉൾപ്പെടുത്തി നൽകിയിരുന്ന ഇളവുകൾ പുതിയ പോസിറ്റീവ് കേസുകൾ വന്നതിനാൽ പിൻവലിക്കും ഈ ജില്ലകളെ ഓറഞ്ച് സോണിൽ പെടുത്തും കണ്ണൂർ കാസർകോട് ഉൾപ്പെടെയുള്ള നാല് ജില്ലകൾ റെഡ് സോണിൽ തുടരും

ഇവയിലെ ഹോട്ട്സ്പോട്ടുകളായി പഞ്ചായത്തുകൾ അടച്ചിടുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

ജില്ലാ ഭരണകൂടങ്ങൾക്ക് താത്പര്യമുള്ള സ്ഥലങ്ങളിലും ആവശ്യക്കാർക്ക് ഭക്ഷണം എത്തിച്ച് നൽകാൻ കഴിയുന്നിടങ്ങളിലുമാണ് ഈ സംവിധാനം ഒരുക്കുക

ആവശ്യം ഏറിയാൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ അടുക്കളകൾ സ്ഥാപിക്കാമെന്നും റെയിൽവേ പറയുന്നു

നിലവിൽ ഇന്ത്യൻ റെയിൽവെ ഒരു ലക്ഷത്തോളം ഭക്ഷണ പ്പൊതികൾ വിതരണം ചെയ്യുന്നുണ്ട് ഉച്ച ഭക്ഷണവും രാത്രി ഭക്ഷണവുമാണ് റെയിൽവേ ഇപ്പോൾ വിതരണം ചെയ്യുന്നത്

ആർ സി ടി സി അടുക്കളകൾ ആർ പിഎഫ് സംവിധാനങ്ങൾ മറ്റ് റെയിൽവെ വിഭാഗങ്ങൾ സർക്കാരിതര സംഘനടകൾ എന്നിവയുടെ സഹകരണത്തോടെയാണിത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതിൽ കർണ്ണിക് അൻഗ്രിയ എന്നീ കപ്പലുകൾ മുംബൈ തുറമുഖത്ത് നങ്കൂര്മിട്ടീരിക്കുകയാണ്

ധൂബ്രി ജില്ലയിൽ നിന്നുള്ള വൃക്തിക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് അസം ആരോഗ്യ മന്ത്രി ഹിമന്ത ബിസ്വ ശർമ്മ ട്വീറ്റ് ചെയ്തു